മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആക്ടിവിസ്റ്റുകൾക്ക് പോലീസ് സംരക്ഷണം നൽകില്ലെന്നും മന്ത്രി

അനുവദിക്കണമെന്ന് കേന്ദ്ര ഗ്വൺമെന്റിനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെട്ടുന്ന് മ്യന്തി എ

മൊയ്തീൻ

വിലക്കുന്നില്ലെന്ന് ്അഖിലേന്ത്യാ മുസ്ലീം വൃക്തി നിയമ ബോർഡ്

നാളെ കണ്ണൂരിൽ തുടക്കമാവും

ശബരിമല ആക്ടിവിസ്റ്റുകൾക്ക് അവരുടെ ആക്ടിവിസം പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

ഇത്തരക്കാരെ ഗവൺമെന്റ് സംരക്ഷണം നൽകി ശബരിമലയിൽ കൊണ്ടുപോകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി പ്രസക്തമാണോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത ആവശ്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു

അതിനിടെ സുപ്രീംകോടതി യുവ്തീ പ്രവേശ വിഷയം ഏഴംഗ ബെഞ്ചിന് വിട്ട സാഹചര്യത്തിൽ നിയമോപദേശം നൽകാൻ അഡക്കേറ്റ് ജനറൽ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും തിരുവിതാംകൂർ ദേവസ്വംബോർഡ് പ്രസിഡന്റായി എൻ വാസുവും അംഗമായി കെ

രവിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും

സി യുടെ കീഴിൽ സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കാനുള്ള നടപടി ആരംഭിക്കുമെന്ന് ഉടൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയെ അറിയിച്ചു പ്താൻ തയ്യാറാക്കി ടൂറിസം വകുപ്പിൽ നിന്ന് ഭൂമി കെ

ഡി സി യ്ക്ക് കൈമാറാൻ വേണ്ട രേഖകൾ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി വരികയാണ്

സുരേന്ദ്രൻ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സ്റ്റേ ഇല്ലായെന്ന് പറയുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

അഞ്ചംഗ ബെഞ്ച് തന്നെ വിഷയം ഏഴംഗ ബെഞ്ചിന് വിട്ടതോടെ കഴിഞ്ഞ വിധി അസാധുവും അപ്രസക്തവുമായി വിധിയെ തുടർന്ന് ക്ര സംജാതമായ അനുകൂല സാഹചര്യത്തിൽ ഗവൺമെന്റ് ശുബരിമലയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കണ്ട്

സി മൊയ്തീൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതന കുടിശ്ശിക അനുവദിക്കണമെന്ന് കേന്ദ്രഗവൺമെന്റിനോട് നിരന്തരം ആവശ്യപ്പെടുകയാണെന്ന് മന്ത്രി എ

നെൽകൃഷിയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തിന് ആവശ്യമായ വിധത്തിൽ പദ്ധതിയിൽ മാറ്റം വരുത്തുന്ന കാര്യം പരിശോധിക്കും

പ്രസേനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി

ഐ ടി യിൽ മലയാളി വിദ്യാർത്ഥി ഫാത്തിമ ലത്തീഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി തമിഴ്നാട് പോലീസ് മേധാവിക്ക് കത്ത് നൽകിയതായി മുഖ്യമന്ത്രിക്കുവേണ്ടി മന്ത്രി ജി സുധാകരൻ നിയമസഭയെ അറിയിച്ചു ഫാത്തിമയുടെ മാതാപിതാക്കൾ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ട് മരണത്തിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

ഷട്ടറുകൾ പ്രവർത്തനസജ്ജമാക്കാനും അറ്റകൂറ്റപ്പണികൾക്കും മണ്ൽത്തിട്ട നീക്കാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്

ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ ചിലർ റിട്ട് ഹർജി നൽകിയത്

ചിലരുടെ തെറ്റായ നടപടികൊണ്ട് പള്ളിയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടവരാണ് കോടതിയെ സമീപിച്ചത്

ഇനി ആരെങ്കിലും പ്രവേശനം തടയുന്നുണ്ടെങ്കിൽ അത് ഇസ്താമിക വിരുദ്ധമാണ്

അതിരൂപതാ സഹായമെത്രാൻ ഡോ ആർ ക്രിസ്തുദാസിന്റെ മുഖ്യ കാർമികത്വത്തിലുള്ള ദിവ്യബലിയോടെ തിരുനാൾ ചടങ്ങുകൾക്ക് തുടക്കമാകും ക്രിസ്തുരാജ സന്നിധിയിൽ നിന്ന് കൊടിയേറ്റിനുള്ള പതാക പ്രദക്ഷിണത്തോടെ വേദിയിൽ എത്തിക്കും തുടർന്ന് ആർച്ച് ബിഷപ്പ് സൂസപാകൃം ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി മണക്കാട് വലിയപള്ളി ചീഫ് ഇമാം അൽഹാജ് ഹാഫിസ് ഇ സി അബുബേക്കർ അൽഖാസിമി എന്നിവർ ആത്മീയ സന്ദേശം നൽകും

ഇന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കുകൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധിയാണ് ന്യൂസ്ഡെസ്ക് ആകാശവാണി

മാങ്ങാട്ടുപറമ്പിലെ ്കണ്ണൂർ സർവ്വകലാശാല സ്റ്റേഡിയത്തിലാണ് കായികോത്സവം നടക്കുക

കൃാപ്റ്റൻ വിരാട് കോഹ്ലി പൂജൃത്തിന് പുറത്തായി മറിയം ത്രേസൃ ഇൻട്രോ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക മറിയം ത്രേസ്യയുടെ വിശുദ്ധ നാമകരണത്തിന്റെ കൃതജ്ഞതാ ബലിയും ദേശീയ സമ്മേളനവും നാളെ കുഴിക്കാട്ടുശേരി മറിയം ത്രേസ്യയുടെ കബറിട ദേവാലയത്തിൽ നടക്കും ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപിന്റെ റിപ്പോർട്ട്

പെൺകുട്ടികളുടെ മാതാവ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്

കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ ഓർത്തഡോക്സ് പ്രവേശിക്കാനെത്തിയ വിഭാഗക്കാരെ യാക്കോബായക്കാർ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത് തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ കയറാതെ മടങ്ങി

ഡി ക്ലർക്ക് നിയമനത്തിനുള്ള വിജ്ഞാപനം പി എസ് സി

എസ് എൽ

ഒറ്റത്തവണ പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് തൃശൂർ വാഹനാപകടം തൃശൂരിൽ ദേശീയപാതയിലെ പുതുക്കാട് ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ റിട്ട

വരന്തരപ്പിള്ളി ത്തോട്ട്യാൻവീട്ടിൽ ഈനാശു പറപ്പൂക്കര എലിഞ്ഞിക്കാടൻ ജോസ്ട് എന്നീവരാണ് മരിച്ചത്

ഇരുവരുടേയും കസ്റ്റഡികാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുകയായിരുന്നു